പെട്രോളിന്റെയും ഡീസലിന്റെയും മൂല്യവർധിത നികുതിയിൽ രാജസ്ഥാൻ ഗവൺമെന്റ് നാല് ശ്ത്രമാന്ം കുറവു വരുത്തി

മാതൃ രാജ്യത്തിന്റെ വിക്സ്നത്തിൽ പങ്കാളികളാകണമെന്ന് വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ സമൂഹത്തോട് ഉപരാഷ്ട്രപതി അഭ്യർത്ഥിച്ചു

ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സെർബിയ യുടെ നൊവാക് ജോക്കോവിച്ചിന്

സാഫ് കപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യൻമാരായ ഇന്ത്യ സെമി ഫൈനലിൽ പ്രവേശിച്ചു

ഡി എയ്ക്കെതിരെ വൃക്തമായ നയങ്ങളില്ലാതെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു

ജെ പി ദേശീയ നിർവാഹക സമിതി യോഗത്തിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി

ഡി എ യ്ക്കെതിരെ മഹാസഖ്യത്തിന് തയ്യാറെടുക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കടുത്ത വിമർശനമാണ് പ്രധാനമന്ത്രി നടത്തിയത്

വ്യക്തമായ നയങ്ങളില്ലാതെ അഴിമതി മാത്രമാണ് അവർ ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു ഇതുവരെ നേരിട്ട് കണ്ടിട്ടുപോലുമില്ലാത്തവരാണ് ഇപ്പോൾ മഹാസഖ്യം രൂപീകരിക്കുന്നത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയോടുള്ള ആദരമായി അജയ് ഭാരത് അടൽ ബി ജെ പി എന്നതാണ് ബി ജെ പി തിരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന മുദ്രാവാക്യമെന്നും ശ്രീ

ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തുന്നതിൽ ക്രോൺഗ്രസ് പരാജയപ്പെട്ടുവെന്ന് ശ്രീ

അധികാരത്തെ ബി ജെ പി കാണുന്നത് കസേരയിൽ ഇരീക്കാനല്ല മറിച്ച് ജനങ്ങൾക്കുവേണ്ടി ക്ഷേമപ്രവർത്തൂനം നടത്താനാണ്

പി യെ അധികാരത്തിൽ നിന്നും നീക്കാൻ കഴിയില്ലെന്ന് ബീജ്ജ്പി അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞു

ഈ തീരുമാനം സംസ്ഥാന ഗവൺമെന്റിന്റെ നികുതി വരുമാനത്തിൽ രണ്ടായിരം കോടി രൂപയുടെ കുറവ് വരുത്തും തീരുമാനം സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആശ്വാസകരമായിക്കുമെന്നും ശ്രീമതി വസുന്ധര രാജെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

അമേരിക്കയിലെ ചിക്കാഗോയിൽ രണ്ടാമത് ലോക ഹിന്ദു കോൺഗ്രസിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം മാതൃ രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകണമെന്ന് വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ സമൂഹത്തോട് ഉപരാഷ്ട്രപതി അഭ്യർത്ഥിച്ചു കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

സഹിഷ്ണുത ബഹുസ്വരതയുടെ സ്വീകരണം നാനാത്വത്തിൽ ഏകത്വം എല്ലാത്തിനെയും സ്വീകരിക്കാനും സ്വാംശികരിക്കാനുമുള്ള കഴിവ് എന്നിവയാണ് ഹിന്ദുത്വം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു പ്രകൃതിയോടൊപ്പം ഇണങ്ങി ചേർന്ന് എങ്ങനെ സൌഹൃദപരമായി ജീവിക്കാം എന്നതാണ് ഹിന്ദുമതം പഠിപ്പിക്കുന്നത് സാമി വിവേകാനന്ദനെ പോലെയുള്ള മഹാന്മാരുടെ ആദർശങ്ങൾ സ്വാംശീകരിച്ച് ഹിന്ദുത്വത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഉപരാഷ്ട്രപതി ആഹ്വാനം ചെയ്തു സ്ത്രീകളോടുള്ള ബഹുമാനവും അവരുടെ ശാക്തീകരണവുമാണ് ഹിന്ദുത്വത്തിന്റെ മറ്റൊരു പ്രധാന ആശയം കരുതലും കൈമാറലുമാണ് ഹിന്ദുമതത്തിന്റെ സവിശേഷതയെന്നും അദ്ദേഹം പറഞ്ഞു മാതൃഭാഷയും സംസ്കാരവും കാത്തുസൂക്ഷിക്കണമെന്നും അദ്ദേഹം സമ്മേളന പ്രതിനിധികളോട് അഭ്യർത്ഥിച്ചു

പകർച്ച വ്യാധികൾ തടയുന്നതിനായി ഗവൺമെന്റ് പ്രത്യേക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പ്രളയ ബാധിത മേഖലകളിലേക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘത്തെ അയച്ചിട്ടുണ്ട്

നാഗാലാന്റ് മണിപ്പൂർ മിസോറാം ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കും സാധ്യതയുള്ളതായും മുന്നറിയിപ്പിൽ പറയുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണ്ണാടക എന്നിവിടങ്ങളിലും ശക്തമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം മുന്നറിയിപ്പ് നൽകി

കേരളത്തിൽ ബന്ദിനുപകരം എൽ

എഫും യു

എഫും സംയുക്തമായി ഹർത്താൽ ആചരിക്കുകയാണ് വിവിധ സ്ഥലങ്ങളിൽ കട കമ്പോളങ്ങളും സ്കൂളുകളും ഗവൺമെന്റ് ഓഫീസുകളും അടഞ്ഞ് കിടക്കുകയാണ്

സ്വകാര്യ വാഹനങ്ങൾ ചെറിയ തോതിൽ ഓടുന്നുണ്ട് എന്നാൽ സ്വകാര്യ ബസുകളും കെ എസ് ആർ ടി സി യും സർവ്വീസ് നടത്തുന്നില്ല റോഡിൽ തിരക്ക് നന്നേ കുറവാണ് കേരളത്തിൽ ഹർത്താൽ ഏറെക്കുറെ പൂർണ്ണമാണെന്നാണ് റിപ്പോർട്ട്

മൂന്ന് രാഷ്ട്രങ്ങളിലേയും ഭരണാധികാരികളുമായും രാഷ്ട്രപതി വിവിധ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ച നടത്തി ആഗോളതലത്തിൽ ഭീകരതയെ ചെറുക്കുന്നതിനുള്ള സമഗ്ര പദ്ധതികളെക്കുറിച്ചും രാഷ്ട്രപതി മൂന്ന് രാഷ്ട്രങ്ങളിലേയും നേതാക്കളുമായും ചർച്ച നടത്തി

ചികിത്സാ നിരക്കുകൾ സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് നിതി ആയോഗ് അംഗം ഡോ

പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്നതാണ് പദ്ധതിയെന്ന് അദ്ദേഹം അറിയിച്ചു

എൽ വിഭാങ്ങൾക്കും ഇടത്തര കുടുംബങ്ങൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും

ഉത്സവത്തിന്റെ ഭാഗമായി കാളകളെ കുളിപ്പിക്കുന്നതിനിടെയാണ് ഔറംഗാബാദ് ജില്ലയിൽ ഏഴുപേർ മുങ്ങി മരിച്ചത് മൂന്ന് പേർ യവത്മാലിലും നാസിക് ലത്തൂർ ഹിംഗോളി എന്നിവിടങ്ങളിൽ ഒരാൾ വീതവും മരിച്ചതായും റിപ്പോർട്ടുണ്ട് കന്നുകാലികളോട് പ്രത്യേകിച്ച് കാളകളോടുള്ള സ്നേഹം പ്രകടമാക്കുന്ന ഉത്സവമാണ് പോലാ

എൻ

പ്രിയപ്പെട്ടവരെ നഷ്ടമായവർക്ക് തക്കതായ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടൈന്നും ശ്രീലങ്കൻ ഗവൺമെന്റ് അത് നൽകണമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ജനീവയിൽ ഇന്ന് ആരംഭിച്ച യു

വ്യാഴാഴ്ച രാവിലെ ഉണ്ടായ ശക്തമായ ഭൂചലനത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു

എസ് ഓപ്പൺ പുരുഷ്ട് സിംഗിൾസിൽ കിരീടം നൊവാക് ജോക്കോവിച്ചിന് അർജന്റീനയുടെ ജുവാൻ മാർട്ടിൻ ഡേൽ പോട്രോയെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ജോക്കോവിച്ച് തോൽപിച്ചത്

ന്യൂഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം